പാരീസ് ഉടമ്പടിയുടെ ്ട് ലക്ഷ്യ്പ്രാപ്തിക്കായി ഒത്തുചേർന്ന് പോകുന്ന ചുരുക്കം ചില്ച് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു അഗ്ഗോള താപനില വർദ്ധനവ് രണ്ട് ഡിഗ്രി സെൽഷൃസിൽ താഴെയാക്കുക എന്നാണ് പാരീസ് ഉടമ്പടി ലക്ഷ്യമിടുന്നത് ആവാസ സംരക്ഷണം സുസ്ഥിര ജീവിതശൈലി ഹരിത വികസന മാതൃക എന്നീ മൂലൃങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കാലാവസ്ഥാ വൃതിയാന ഉദൃമങ്ങളിൽ ഇന്ത്യ എന്നും മുൻപന്തിയിലാണ് ഭൂമണ്ഡലത്തെ ഒന്നിച്ച് നിർത്തുന്ന ദേശാടന ജീവജാലങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഈ സമ്മേളനത്തിന്റെ സന്ദേശം സംരക്ഷിത പ്രദേശങ്ങൾ മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിനാൽ വന്യജീവികളുടെ സംരക്ഷണത്തിന് മറ്റുരാജ്യങ്ങളുടെ സഹകരണം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അതീവ ഗൌരവത്തോടെ ഈ വിഷയങ്ങൾ കാണണമെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു

അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്

സന്ദർശന വേളയിൽ പ്രസിഡന്റ് ട്രംപും മെലാനിയ ട്രംപും ന്യൂഡൽഹിയിലും ഗുജറാത്തിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് ഔദ്യോഗിക വാർത്താകുറിപ്പിൽ അറിയിച്ചു തന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിനായി ഉറ്റു നോക്കുകയാണെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഇന്ത്യ യു എസ്

ജനാധിപത്യത്തോടും ബഹുസ്വരതയോടും ഇന്ത്യയും അമേരിക്കയും പൊതുവായ പ്രതിബദ്ധത പുലർത്തുന്നുന്നെ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ജനങ്ങൾക്കു മാത്രമല്ല ലോകത്തിനു തന്നെ ഗുണകരമാണെന്ന് ശ്രീ

ഇന്തോ പസ്ഷ്ലിക് മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉയർത്തിപ്പിട്ടിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താനും സന്ദർശനം സഹായിക്കുക്മെന്ന് അദ്ദേഹം പറഞ്ഞു ഊർജ്ജം ഉൽപാദനം തുടങ്ങി പല് രംഗങ്ങളിലും ഇതിനകം ഇരുരാജ്യങ്ങളും പങ്കാളിത്തം ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്നും മുകേഷ് അഘി പറഞ്ഞു

മണ്ഡല പുനർനിർണയത്തിന്റെ ചുമതലയുള്ള നിയമകാര്യ മന്ത്രാല്ലയത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം

യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ഉഭയകക്ഷി താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നതിനും മാർച്ചിൽ ബ്രസൽസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചർച്ചകൾക്കുമാണ് അദ്ദേഹം ബ്രസൽസിലെത്തിയത്

ഇന്ത്യയെ ലക്ഷ്യംവച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹുദ്ദീൻ തുടങ്ങി നിരവധി ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ നിരന്തരം സഹായങ്ങൾ നൽകുന്നതായി ഇന്ത്യ വ്യക്തമാക്കി പാകിസ്ഥാനെതിരെ എഫ്

ടി

ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന എഫ്

ടി എഫ് പ്തീനറി സമ്മേളനത്തിൽ പാകിസ്ട്രാണ് ഗ്രേ ലിസ്റ്റിൽ നിലനിർത്തുമോ ലിസ്റ്റിൽ നിന്ന് കൂഴിവ്വാക്കുമോ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ തുടങ്ങിയു കാര്യങ്ങൾ പരിശോധിക്കും

ഇവ ശനിയാഴ്ച വരെ സ്വീകരിക്കും

ചൈനയ്ക്ക് പുറത്ത് വളരെ കുറച്ചു മാത്രമേ രോഗം ബാധിച്ചിട്ടുള്ളൂ

ജപ്പാനിലെ ഡയമ് പ്രിൻസസ് കപ്പലിലെ വൈറസ് ബാധയുടെ പശ്ചാത്തല്പിത്തിൽ മറ്റു കപ്പലുകൾ പിടിച്ചിടേതില്ലെന്നും ലോകാരോഗ്യൂ സംഘടന അറിയിച്ചു

ചൈനയിലെ വുഹാനിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ ക്യാമ്പിലേയ്ക്ക് കൊുവന്നത്

ഇവരിൽ ഏഴ് മാലിദ്വീപുകാരും ഉൾപ്പെടുന്നു

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

ബംഗ്ലാദേശിലെ സിൽഹെറ്റിലും ചിറ്റഗോങ് മേഖലകളിലും സംസാരിക്കുന്ന ഭാഷകൾ പ്രത്യേകം കണക്കിലെടുക്കുന്നു്

ചരിത്രത്തിൽ നിന്നും മറഞ്ഞു തുടങ്ങിയ ഭാഷകളുടെ വിവരശേഖരണവും ഇതിലു്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

മന്ത്രിസഭ അംഗീകരിക്കുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ ആരായുന്നതിനായി പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് ഉടൻ കരട് അയയ്ക്കും

ചാർലപള്ളി റെയിൽവെ സ്റ്റേഷനിലെ സാറ്റ്ലൈറ്റ് ടെർമിനൽ വികസനത്തിന് തറക്കല്ലിടുന്ന റെയിൽവെ ്മൃത്തി യെരഗു നന്ദ്യാൽ സെക്ഷനിലെ വൈദ്യുതീകരണ പദ്ധത്തിയും ഉദ്ഘാടനം ചെയ്യും ഗുക്കൽ കല്ലൂരു സെക്ഷനിലെ രാമത്തെ ്ലൈനിന്റെ വൈദ്യുതീകരണത്തിനും ശ്രീ